നിക്ഷേപം ടൂറിസം ആണവോർജ്ജം എന്നീ രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കും

ദേശീയ വികസനത്തിൽ അധ്യാപകർ മുഖ്യ ശില്പികളാണെന്ന് ന് ഉപരാഷ്ട്രപതി

ശക്തിപ്പെടുത്താൻ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയ്ക്ക് നിർദ്ദേശം നൽകി

നിക്ഷേപം വിനോദസഞ്ചാരം ആണവോർജ്ജം സോഫിയ സർവ്വകലാശയിൽ ഹിന്ദി ചെയർ സ്ഥാപിക്കുക എന്നിവയിലാണ് കരാർ ഒപ്പിട്ടത് ബൾഗേറിയ സന്ദർശിക്കുന്ന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ് സാന്നിധൃത്തിലാണ് കരാറുകൾ ഒപ്പിട്ടത് ഇന്ത്യ ബൾഗേറിയ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു

യു എൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വത്തിനുള്ള ഇന്ത്യിയുട്ട ശ്രമത്തിന് പിന്തുണ നൽകിയതിൽ ബൾഗേറിയൻ പ്രസിഡന്റ് റുമുൻ റദേവിന് രാഷ്ട്രപതി നന്ദി പറഞ്ഞു

അധ്യാപക ദിനത്തോട് അനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് സോഫിയ സർവ്വകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധിന ചെയ്യും

ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ ചില സ്കൂളുകൾ കൂട്ടികൾക്ക് പ്രവേശനം നിഷേധിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശമെന്ന് അതോറിറ്റി അറിയിച്ചു കുട്ടികൾക്ക് ആധാർ എൻറോൾമെന്റ് പരിഷ്ക്കരണ ് സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം് സ്കൂളുകൾക്കാണെന്ന് അവർ പറഞ്ഞു പ്രാദേശിക സ്കൂളുകൾ പോസ്റ്റ്ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഭരണകൂടം എന്നിവയുടെ സഹകരണത്തോടെ സ്കൂൾ പരിസരത്ത് തന്നെ ആധാർ എൻറോൾമെന്റിനുള്ള സൌകര്യം സ്കൂൾ അധികൃതർക്ക് ഒരുക്കാൻ കഴിയണമെന്നും അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോ

ദേശീയ അധ്യാപക അവാർഡുകൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

പ്രാഥമിക വിദ്യാഭ്യാസം എപ്പോഴും മാതൃഭാഷയിലൂട്ടിരിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു അധ്യാപകരോടുള്ള ബഹുമാനവും ആദരവും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ പരിസ്ഥിതിയും സംസ്ക്കാരവും മികച്ച ഭാവിയുടെ അടിത്തറയാണ് പ്രവൃത്തി പരിചയത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കണം പഠനത്തിനും പരിശീലനത്തിനും നേതൃത്വം നൽകുന്നവരാണ് അധ്യാപക സമൂഹം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഷിംല സെഷൻസ് ജഡ്ജി വീരേന്ദർ സിംഗാണ് യുഗ് എന്ന് പേരുള്ള ബാലനെ കൊലപ്പെടുത്തിയ മൂന്ന് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് വിധിയെ കുട്ടിയുടെ പിതാവ് സ്വാഗതം ചെയ്യുന്നു

ആൾക്കൂട്ട ശിക്ഷാ രീതികൾ തടയുന്നതിനുള്ള പുതിയ നിയമം നടപ്പാക്കുന്നതിനുള്ള സാധുതയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുഷമാസ്വരാജ് രവിശങ്കർ പ്രസാദ് നിതിൻ ഗഡ്ഖരി എന്നിവരെ കൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു

റഫാൽ ഇടപാടിനെ വിമർശിക്കുന്നവർ ആയുധ സംഭരണ വൃവസ്ഥകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് വ്യോമസേനാ ഉപമേധാവി എയർ മാർഷൻ എസ് ബി ദേവ് പറഞ്ഞു

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായ എ

ചന്ദ്രചൂഡ് എന്നിവരടങ്ങുന്ന ബഞ്ചാണ് വാദം കേൾക്കുന്നത് യുദ്ധ വിമാന കരാറിൽ ക്രമക്കേടുകൾ നടന്നതായി ഹർജിക്കാരൻ ചൂ ിക്കാട്ടി

സ്വദേശി ദർശൻ സ്ക്കിമിന്റെ കീഴിൽ മലനാട് മലബാർ ക്രൂസ് ടൂറിസം പദ്ധതിക്കാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം തുക അനുവദിച്ചത്

ആരോഗ്യവകുപ്പ് പ്രവർത്തകർ ഇത്തരം മേഖലകളിലെത്തി പ്രതിരോധപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്ന് ഉറപ്പു വരുത്തണം

മറ്റ് പകർച്ച വ്യാധികൾക്കെതിരെയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി

പ്രവേശനം നേടിയ വിദ്യാർഥികൾ പുറത്ത് പോകേ വരുമെന്നും ഇത്തരത്തിൽ കോളേജുകളിൽ പ്രവേശനം അനുവദിക്കാൻ ആകില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു മെഡിക്കൽ കൌൺസിൽ നൽകിയ ഹർജിയിൽ നാളെ വിശദമായ വാദം കേൾക്കും

ഒളിമ്പിക് മെഡൽ എന്ന ലക്ഷ്യത്തിനായി പരിശ്രമിക്കണ്ട്മെന്ന് ് പ്രധാനമന്ത്രി കായികതാരങ്ങളോട് ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി ഉദ്യൻകിളിയന്നൂർ

മെഡൽ നേട്ടം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി ശ്രീ മോദി പറഞ്ഞു ഇപ്പോൾ കൈവരിച്ച നേട്ടവും ആവേശവും തുടർന്നും നിലനിർത്തണം ഭാവിയിലെ നേട്ടങ്ങൾക്ക് ഇത് കരുത്താവണം കായിക രംഗത്തെ മികവിന് നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം അതിനോടൊപ്പം സ്വന്തം കഴിവുകളും പോരായ്മയു െങ്കിൽ അതും സ്വയം പരിശോധന നടത്തണം ഗ്രാമീണ മേഖലയിൽ നിന്ന് നിരവധി കായികതാരങ്ങൾ മുന്നോട്ട് വരുന്നതിൽ പ്രധാനമന്ത്രി സന്തുഷ്ടി പ്രകടിപ്പിച്ചു ഗ്രാമീണ മേഖലയിൽ നിന്ന് കഴിവുള്ളവരെ കടെ ത്തണം ഇനി വിശ്രമത്തിന്റെ സമയമല്ലെന്നും ഒളിമ്പിക് മെഡലാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ഛത്തീസ്ഗഡിൽ അടൽ വികാസ് യാത്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കാർട്ടറിൽ ഡൊമിനിക് തീമിനെ അഞ്ച് സെറ്റ് നീ പോരാട്ടത്തിലാണ് നദാൽ തോല്പിച്ചത്

ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോലിന്റെ പ്ലിസ്കോവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് കീഴടക്കിയാണ് സെറീനാ വീല്ലുർസ് സെമിയിൽ കടന്നത്

ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

പതിവു നിരീക്ഷണത്തിനു പോയ സുരക്ഷാ സേനക്ക് നേരെയായിരുന്നു വെടിവെയ്പ് മറ്റൊരു സംഭവത്തിൽ യുപിയിൽ രജൌറി ജില്ലയിലെ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരർ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചു കേരി മേഖലയിലായിരുന്നു സംഭവം